പ്രതീക്ഷയോടെ പുതുവർഷത്തെ വരവേറ്റ് ലോകം രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുവത്സരാശംസകൾ നേർന്നു

ഭാഗമായി രാജ്യത്തുടനീളം നാളെ ഡ്രൈ റൺ ആരംഭിക്കും

കോവിഡ് മഹാമാരി സൃഷ്ടിച്ച കടുത്ത പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വർഷമാണ് കടന്നു പോയിരിക്കുന്നത് പ്രതിസന്ധികളെല്ലാം അസാമാന്യമായ ആത്മധൈര്യത്തോടെയും ഒത്തൊരുമയോടെയും ഉത്തരവാദിത്വത്തോടെയും മറികടന്ന ഒരു വർഷം കൂടെയായിരുന്നു ഇത് ശുഭപ്രതീക്ഷയോടെയാണ് രാജ്യം പുതുവർഷത്തിലേക്ക് കാലെടുത്തുവയ്ക്കുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് അത്യുത്സാഹപൂർവമാണ് കേരളം പുതുവത്സരത്തെ വരവേറ്റത് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവൂക് ജനങ്ങൾക്ക് പുതുവത്സരാശംസകൾ നേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദീയും കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കറും ആൾംസകൾ അറിയിച്ചു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ് മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാ കേരളീയർക്കും പുതുവത്പൂർത്ത്സംശകൾ നേർന്നു

വാക്സിൻ പരീക്ഷണങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പുതുവർഷം ചികിത്സാ രംഗത്ത് പ്രതീക്ഷകൾ നിറയുന്ന വർഷമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ഗുജറാത്തിലെ രാജ്ഘട്ടിൽ ആരംഭിക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

മധ്യപ്രദേശ് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവർ ചടങ്ങിൽ വെർചലായി പങ്കെടുക്കും കേന്ദ്ര നഗരകാര്യമന്ത്രിയും ത്രിപുര ഝാർഖണ്ഡ് ഉത്തർപ്രദേശ് ഗുജറാത്ത് തമിഴ്നാട് ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും

താങ്ങുവിലയ്ക്ക് നിയമ പരിരക്ഷ വേണമെന്ന കർഷകരുടെ ആവശ്യം അടുത്ത ചർച്ചയിൽ തീരുമാനിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു

ഡൽഹിയിലെ അതി ശൈത്യത്തിന്റെ പശ്ചാത്തലത്തിൽ സമീരത്തിനെത്തിയ വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും വീടുകളില്ലേക്ക് മടക്കി അയയ്ക്കാൻ കേന്ദ്രമന്ത്രി സമരക്കാരോട് അഭ്യർത്ഥിച്ചു

എല്ലാ സ്കൂളുകളിലും പ്രധാനാധ്യാപകന്റെ നേതൃത്വത്തിൽ കോവിഡ് സെൽ രൂപീകരിക്കാനും നിർദ്ദേശത്തിൽ പറയുന്നു

തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി എല്ലാ സംസ്ഥാനങ്ങളിലും തലസ്ഥാന നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലും ഡ്രെഡ റൺ നടത്തണം എന്നാൽ മഹാരാഷ്ട്രയും കേരളവും ഉൾപ്പടെയുള്ള ചില സംസ്ഥാനങ്ങൾ തലസ്ഥാന നഗരങ്ങൾ അല്ലാത്ത പ്രദേശങ്ങളിലും ഡ്രെ റൺ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്

ഇന്ത്യയിൽ പ്രതിദിന കോവിഡ് മരണം കുറയുന്നതായി കേന്ദ്ര ആരോഗൃമന്ത്രാലയം അറിയിച്ചു

ഉരുക്കു മാർബിൾ ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയവയുടെ ഉത്പാദനവും വൃവസായവും നടത്തുന്ന കമ്പനികളിലാണ് റെയ്ഡ് നടന്നത്

ജി

ജമ്മു കശ്മീർ ജില്ലാ് വികസന കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വിജയകരമായിരുന്നു വെന്ന് അദ്ദേഹം ജമ്മുവിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

നേരത്തെ ഇന്ന് മുതൽ ഫാസ്ടാഗ് നിർബന്ധമാക്കാനായിരുന്നു തീരുമാനം

ലൈസൻസ് പുതുക്കൽ മേൽവിലാസം മാറ്റൽ ഡ്യൂപ്സിക്കേറ്റ് എടുക്കൽ അധിക ക്സാസ് കൂട്ടിച്ചേർക്കൽ എന്നിവയ്ക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഓൺലൈനായി അപേക്ഷിക്കാം

പ്രത്യേക സമ്മേളനം ചേർന്നാണ് സഭ ശബ്ദ വോട്ടോടെ പ്രമേയം പാസാക്കിയ്ത്

കോടതി വിധി മുതലെടുക്കാനുള്ള ലോട്ടറി മാഫിയയുടെ ശ്രമങ്ങളെ തടയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു